മുന്നറിയിപ്പ് സംസ്ഥാനത്തെ നാലു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ലക്ഷദ്വീപിൽ അതീവ ജാഗ്രത കേരളതീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ നിരോധനം

ശക്തം എറണാകുളത്ത് നീരുവധിപേരെ മാറ്റിപാർപ്പിച്ചു

റെയിൽപാത അഞ്ച് വർഷത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ

നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് ഫയലുകൾ തീർപ്പാക്കാനാണ് അദാലത്തുകൾ നടത്തിയതെന്ന് മന്ത്രി കെ

ഇന്ന് രാജ്യം ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നു മഹ ചുഴലിക്കാറ്റ് മഴ അറബിക്കടലിൽ ലക്ഷദ്വീപ് മേഖലയിൽ രൂപം കൊണ്ട മഹ ചുഴലിക്കാറ്റിന്റെ ഫലമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്കുമുമ്പ് കൂടുതൽ കരുത്ത് പ്രാപിക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്

മഹാ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ലെങ്കിലും തീരത്തോട് കേരള ചേർന്ന കടൽപ്രദേശങ്ങളിലൂടെ തീവ്ര ന്യൂനമർദ്ദം കടന്നുപോകുന്നുണ്ട് ഇതിനാൽ കേരളതീരത്ത് ശനിയാഴ്ചവ്ട്ര മത്സ്യബന്ധനത്തിന് പൂർണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ ബീച്ചുകളിലും കടൽത്തീരങ്ങളിലും പോകരൂത്തെന്നും മുന്നറിയിപ്പുണ്ട് തീര മലയോര മേഖലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണിട്കുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്

താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്

നായരമ്പലം എടവനക്കാട് ചെല്ലാനം ഭാഗങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്

താന്തോന്നി തുരത്തിലും വെള്ളം കയറി

ആലപ്പുഴയിലും കടലാക്രമണം രൂക്ഷമാണ്

നെയ്യാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

കേസിൽ സി ബി

അതിനിടെ വാളയാർ കേസ് പുനരന്വേഷിക്കണം എന്നാവശൃപ്പെട്ട് ബി ജെ

കോടതിയെ സമീപിച്ച മാത്രമേ തുടർനടപടികളിൽ ശേഷം തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം അറിയിച്ചു

പദ്ധതി റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു പദ്ധതിയിലൂടെ നാല് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർകോഡ് വരെ യാത്ര ചെയ്യാനാകും

സർവ്വകലാശാലയിലെ മാർക്ക് ദ്വന വിവാദത്തിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്ന് അടിയ്ന്തർപ്രമേയത്തിന് നോട്ടീസ് നൽകിയത്

സതീശൻ എം

എ യാണ് പ്രതിപക്ഷത്തുനിന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്

പരീക്ഷ നടത്തിപ്പിലെ ന്യായ അന്യായങ്ങൾ തീരുമാനിക്കാൻ മന്ത്രിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ശ്രീ

എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ കെട്ടിക്കിടന്ന ഫയലുകൾ തീർപ്പാക്കാനാണ് അദാലത്തുകൾ നടത്തിയതെന്ന് മന്ത്രി കെ

അദാലത്ത് ദിവസം മോഡറേഷൻ നൽകിയിട്ടില്ല

മോഡറേഷൻ പോസ്റ്റ് മോഡറേഷൻ എന്നിവയിൽ തീരുമാനമെടുക്കാൻ സർവ്വകലാശാലയ്ക്ക് അധികാരമുണ്ടെന്നും ആരോപണം ശരിയാണെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും മന്ത്രി കെ

മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തരപ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി

നിയമസഭ മെഴ്സിക്കുട്ടിയമ്മ കേന്ദ്രഗവൺമെന്റിന്റെ സമുദ്ര മത്സ്യബന്ധന നിയമപ്രകാരമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് പരമ്പരാഗത തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്ന് ഫിഷറീസ് മന്ത്രി ജെ

ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു കുത്തക കമ്പനികൾ മത്സ്യബന്ധന രംഗത്തേക്ക് കടന്നുവരുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് നിതാന്ത ജാഗ്രത പുലർത്തുന്നതായും മന്ത്രി പറഞ്ഞു